റെയിൽ വ്യോമഗതാഗതം വിപുലീകരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കളി തടസ്സപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ

കഴിഞ്ഞ നാലരവർഷക്കാലമായി ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം തുല്യതയും സാമൂഹ്യ നീതിയും ഉറപ്പുവരുത്തി യായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് വികസനം എല്ലാവരുടെയും വികസനം ദേശത്തിന്റെ വികസനം സമ്പൂർണ്ണ വികസനം എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴി ഗ്രാമീണ ജന തയ്ക്ക് വീടുകൾ ഉറപ്പാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുവെന്നും പലാമുവിൽ സംസാരിക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു

നരേന്ദ്ര മോദി പറഞ്ഞു

ജെ

പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോ്ദി ഇന്ന് നമോ ആപ്പ് വഴി സംവദിക്കും പാർട്ടി ഫെയ്സ്ബുക്ക് പേജിൽ ലൈവായും ബ്ലോഗിലും ഇത് കാണാൻ സാധിക്കും

ഗുണമേന്മയുള്ള ജോലി കുറഞ്ഞ ചെലവ് പദ്ധതികളുടെ സമയ ബന്ധിതമായുള്ള പൂർത്തീകരണം പുതിയ സാങ്കേതിക വിദ്യ എന്നിവയിലൂന്നിയാണ് റോഡിന്റെയും പാലങ്ങളുടെയും നിർമ്മാണം നടത്തുന്നതെന്നും ശ്രീ

ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജെ

തമിഴ്നാട് പുതുച്ചേരി ആന്റമാൻ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയ ലിനാണ് മുഖ്യചുമതല

ടി രവി സഹചുമതല വഹിക്കും

നദ്ദയും ഡൽഹിയിൽ ശ്രീമതി

കർണ്ണാടകയിൽ മുരളീധർ റാവുവിന് മുഖ്യചുതലയും കിരൺ മഹേശ്വരിക്ക് സഹ ചുമതലയുമാണ് ഹരിയാനയിൽ കൽരാജ് മിശ്രക്കും തൃപുര യിലും ജമ്മുകാശ്മീരിലും അവിനാശ് റ്റായ്പ്പന്നയ്ക്കുമാണ് ചുമ തല

ഓഫീസ് സിൽവാസയിൽ ബി

ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ബൂത്ത് കാര്യകർത്താ സമ്മേളനവും അദ്ദേഹം അഭിസംബോധന ചെയ്യും

റോഡിലുള്ള മഞ്ഞ് വീഴ്ചയും വഴുക്കലും ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗത്തെ ബാധിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കശ്മീർ താഴ് വരയിൽ ഇന്നും മഴയ്ക്കും മഞ്ഞു വീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു പൊതുജനങ്ങളോടും വിനോദസഞ്ചാരികളോടും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്നുനിർദ്ദേശമുണ്ട്

ചലോ ജീത്തേഹേ എന്ന ഹിന്ദി ചലച്ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് പ്രത്യേക സ്ക്രീനിംഗിനുശേഷം സംസാരിക്കുകയായിരുന്നു അവർ

വളർച്ചയ്ക്ക് പ്രേരകമായ അന്തരീക്ഷം ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളതിനാൽ വിദേശത്ത് ജോലിക്ക് പോയവരെല്ലാംതീരികെയെത്തുകയാണെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

ആന്ധ്രാപ്രദേശിലെ വിജയവാഡിയിലെ ഒരു കോളേജിൽ നടന്ന ചടങ്ങിൽ അഭിസംബോധന് ച്ചിയ്യുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിലെ വെല്ലൂവിളികൾ നേരിടുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പുനരൂപകൽപന ചെയ്യണമെന്നും ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞു

നിരവധി രാജ്യങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഹിന്ദി ഭാഷയ്ക്ക് ഏറെ പ്രചാരമുള്ളതായും ശ്രീമതി സ്വരാജ് പറഞ്ഞു ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഭാഷയ്ക്ക് മുഖ്യ പങ്കു ണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി

ബംഗളൂരു കാർപ്റ്റേഴ്സ് രണ്ട് പുരുഷ സിംഗിൾസ് മത്സരങ്ങളും പുരുഷ ഡ്ബിൾസ് മത്സരങ്ങളും വിജയിച്ചു നോർത്ത് ഈസ്റ്റേൺ വാരിയേഴ്സ് വനിതാ സിംഗിൾസും മിക്സെഡ് ഡബിൾസും വിജയിച്ചു

സെമീ ഫൈനലിൽ നിഖദ് വൺലായ് ദൌത്യയെയും കലൈവാണി ഹരിയാനയുടെ സഞ്ജുവിനെയുമാണ് നേരിട്ടത്